സന്ദർശനം ഇന്ന് പൂർത്തിയാകും

വോട്ടെടുപ്പ് പൂർത്തിയ്യായി

പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണരംഗത്ത്

ഷൂട്ടിംഗിൽ ഇന്തൃ മുന്നേറ്റം തുടരുന്നു

ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കിടെ അഞ്ച് കരാറുകൾ ഒപ്പിട്ടു വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ

ടി കായികരംഗത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ക് ഹസീനയും തമ്മിലുളള ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി ആരോഗ്യം വ്യാപാരം ഊർജ്ജം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത് ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹാർദ്ദത്തിന്റെ അമ്പതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അനുസ്മരണ സ്റ്റാമ്പുകൾ ഇരുരാജ്യങ്ങളും പുറത്തിറക്കി ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളളി നാണയവും പുറത്തിറക്കി

ന്യൂസ്ഡെസ്ക് ആകാശവാണി

നിയമസഭകളിലുണ്ടാകുന്ന് ത്ർക്കങ്ങൾ നിരാശാജനകമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രപ്ശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും മുൻ രാജ്യസഭാ അംഗവുമാ്യ എൻ നരോത്തം റെഡ്സിയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമനിർമ്മാണ സഭകളിൽ തുടരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ ജനാധിപത്യത്തിൻ മേലുളള ജനങ്ങളുടെ വിശ്വാസം തകർക്കും ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുന്നവരാകണമെന്ന് ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു

പൊതുജീവിതത്തിൽ ധാർമികമൂലൃങ്ങൾ ദേശസ്നേഹം സത്യസന്ധത എന്നിവ ഉൾചേർക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ ശ്രീ നായിഡു വിദ്യാഭ്യാസം സമഗ്ര വ്യക്തികളെ സൃഷ്ടിക്കണമെന്നും പറഞ്ഞു

കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും കെടുതികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ഭൌമ മണിക്കൂർ ആചരണം

പ്രാദേശിക സമയം രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ് വൈദ്യുതി വിളക്കുകൾ അണച്ചും കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ഉൌർജോപയോഗം പരമാവധി കുറച്ചാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്

ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന അസം പശ്ചിമബംഗാൾ എന്നീവിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേര്ളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെയും ഈ കാലയളവിൽ എക്സിറ്റ് പ്ലോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമാണ് കൃമ്മീഷൻ നിരോധിച്ചത്

അസമിൽ പല ബൂത്തുകൾക്കു മുന്നിലും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ മുതൽ തുടർന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് മുഴുവൻ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്

ഇരു സംസ്ഥാനങ്ങളിലും വി

ഇത് സംബന്ധിച്ച് ജനങ്ങളിൽ ബോധവൽകരണം നടത്താനും സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ആവശ്യപ്പെട്ടു ആഘോഷങ്ങളോടനുബന്ധിച്ച് ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിന് ആവശ്യമെങ്കിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്താനും നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു

പ്രമുഖ പാർട്ടികളുടെയും ് മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്

ജെ

ദേശീയ അധ്യക്ഷൻ ജെ

കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും നാളെ വർക്കല ഇരിങ്ങാലക്കുട എറണാകുളം എന്നിവിടങ്ങളിൽ അദ്ദേഹം എൻ ഡി എ

കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തൃത്താലയിൽ ബി ജെ

എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് പ്രചാരണം സി

എം

യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പ്രചാരണത്തിനായി കേരളത്തിൽ സജിവമാണ്

ഡി എഫിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ പര്യടനം നടത്തി

എ തെരെഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും

രോഗവ്യാപനും പ്പ്ർദ്ധിക്കുന്നത് തടയാൻ ജനക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും മുൻകരൂതൽ മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കാനും മഹാരാഷ്ട്ര സർക്കാർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്

ദൂരദർശനിലൂടെയും പരിപാടി കാണാം